ഡി

ആന്ധ്രപ്രദേശിലെ അക്രമസംഭവങ്ങൾ ഒഴിച്ചാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു

ആന്ധ്രപ്രദേശ് സിക്കിം അരുണാചൽ പ്രദേശ് ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് നട ക്കുന്നത്

രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലായിരുന്നു ഒന്നാംഘട്ടത്തിൽ വോട്ടെടുപ്പ്

ഡി എ പ്രചാരണത്തിന് ശക്തിപകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കോഴിക്കോട്ടെത്തും പ്രത്യേക വിമാനത്തിൽ ഡൽഹി യിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം റോഡ് മാർഗ്ഗം ആറുമണിയോടെ കോഴിക്കോട് ബീച്ചിലെത്തും കാസർകോട് മുതൽ പൊന്നാനി വരെ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ പങ്കെടു ക്കുന്ന വിജയ്സങ്കൽപ് റാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും

പിയുടെയും ബി

എസിന്റെയും സംസ്ഥാന നേതാക്കളും ഭാരവാ ഹികളും റാലിയിൽ പങ്കെടുക്കും സമ്മേളനത്തിന് ശേഷം കരിപ്പൂരിൽനിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കോഴിക്കോട്ടും പരിസരങ്ങളിലും കനത്ത് സുരക്ഷ ഏർപ്പെടുത്തി കടപ്പുറത്തെ വേദിയും പരിസരവും എസ്

രണ്ടായിരത്തോളം പൊലീസ് ഉദ്യോഗസ്ഥരെ കോഴിക്കോട്ട് നിയോഗിച്ചിട്ടുണ്ട്

ഡി

വൈകീട്ട് ആലക്കോട് ഇരിട്ടി ചിറ്റാ രിപ്പറമ്പ് എന്നിവിടങ്ങളിൽ അദ്ദേഹം സംസാരിക്കും

എം നേതാവ് പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ നേതാക്കളും ഇന്ന് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാ രണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്

എം പോളിറ്റ്ബ്യൂറോ അംഗം എം എ ബേബി കണ്ണൂർ തോട്ടടയിൽ അഭിപ്രായപ്പെട്ടു

ജെ പിക്കെതിരെയാണ് കോൺഗ്രസ് മത്സ രിക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്തോ പാലക്കാടോ ആകണമായിരുന്നു അതെന്നും എം എ ബേബി പറഞ്ഞു രദ്ദേഷ്ടങ ശബരിമലയിൽ സ്ത്രീയെ ആക്രമിച്ച കേസിൽ ജയിലിലായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ കോഴിക്കോട്ടെത്തും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് പതിനാറ് ദിവസമായി റിമാന്റിൽ കഴി യുകയായിരുന്ന സ്ഥാനാർത്ഥി ജയിൽമോചിതനായത്

തെരഞ്ഞെടുപ്പിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ നിരവധി ബോധവത്ക രണ പരിപാടികൾ കമ്മീഷൻ സംഘടിപ്പിച്ചുവരികയാണ് തിരുവനന്തപുരത്ത് വോട്ടിംഗ് ബോധവത്കരണ പരിപാടി കാസ്റ്റ് യുവർ വോട്ട് പരിപാടി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു ടിക്കാറാം മീണ ഇതിന്റെ ഭാഗമായി പ്രത്യേക പ്രചാരണ വാഹനം അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു മൂന്നേമുക്കാൽ ലക്ഷ ത്തോളം പുതിയ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി മുഖ്യ തെര ഞ്ഞെടുപ്പ് ഓഫീസർ വെളിപ്പെടുത്തി ദർവ്വെട്ടറ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരക്ഷാ സംവിധാന ത്തിന് അന്തിമ രൂപം തയ്യാറാക്കി തീവ്രപ്രശ്ന ബാധിത് ബൂത്തുകളിലും തീവ്രവാദ സംഘടനകളുടെ സ്വാധീന മേഖലകളിലും കൂടുതൽ അർദ്ധസൈ നികരെയും പൊലീസ് സേനാംഗങ്ങളെയും വിന്യസിക്കും

തമിഴ്നാട് ആന്ധ്രപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരം പൊലീസ് ഉദ്യോഗസ്ഥരെ അധികമായി എത്തിക്കാനും തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്

കണ്ണൂർ ജില്ലയിലെ ബൂത്തുകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകും

ഇവിടങ്ങളിൽ ശക്തമായ സുരക്ഷയൊരുക്കും കണ്ണൂർ ജില്ലയിലെ ഭൂരി ഭാഗം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഒരുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

ഡി എഫ് സ്ഥാനാർത്ഥി ശബരിമല വിഷയം പ്രചാരണായുധമാക്കിയെന്നാരോപിച്ച് എൽ ഡി എഫ് ജില്ലാ തെര ഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി ശബരിമല വിധിയുമായി ബന്ധ പ്പെട്ട് സൂപ്രീംകോടതിയെ അവഹേളിക്കുകയും മതവികാരം ഇളക്കിവിടുന്ന തരത്തിൽ പ്രസംഗം നടത്തിയെന്നും ആരോപിച്ചാണ് പരാതി

ആറ് മാതൃകാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാ സ്റ്റിംഗ് ഉണ്ടായിരിക്കും ദർവ്വെട്ടറ ഡിഫറന്റ്ലി ഏബിൾഡ് വെൽഫെയർ അസോസിയേഷൻ യോഗത്തിൽ പങ്കെടുത്ത് ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശൃപ്പെട്ട് പ്രമേയം പാസ്സാക്കിയ വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ പര ശുവെക്കൽ മോഹനന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കാരണംകാണിക്കാൻ നോട്ടീസ് നൽകി അറിയാതെ സംഭവിച്ച പിഴവാണ് ഇതെന്നും ആവർത്തി ക്കില്ലെന്നും ചെയർമാൻ നൽകിയ മറുപടി തൃപ്തികരമായതിനാൽ തുടർ നടപടികൾ അവസാനിപ്പിച്ചതായി മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർകിംഗ്സിന് ജയം ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിനെ നാല് വിക്കറ്റിനാണ് ചെന്നൈ തോൽപ്പിച്ചത്

രാത്രി എട്ടിന് കൊൽക്കത്തയിലാണ് മത്സരം

ട്രെയിൻ നമ്പറിൽ മാറ്റമുണ്ടാവില്ല

കണ്ണൂരിൽ നിന്ന് ട്രെയിനിന്റെ യാത്രാസമയത്തിൽ മാറ്റമുണ്ടാവി ല്ലെന്ന് റെയിൽവെ അധികൃതർ അറിയിച്ചു ഷൊർണ്ണൂർ യാർഡിൽ നവീ കരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ഇന്ന് ഒന്നര മണിക്കൂർ വൈകിയേ എറണാകുളത്തുനിന്ന് യാത്ര പുറപ്പെടൂ എന്ന് റെയിൽവെ അറിയിച്ചു

വയനാട് ഒഴികെ ജില്ല കളിൽ ചൂട് രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്

രദ്ദേഷ്ടങ ആലപ്പുഴ ജില്ലയിൽ പത്തുപേർക്ക്കൂടി ഇന്നലെ സൂര്യാതപമേറ്റു

സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അഭിവാദ്യം സ്വീകരിക്കും

പി കെ എ പി നാല് ബറ്റാലിയനുകളിൽ ഉൾപ്പെട്ടവരാണ് പരേഡിൽ പങ്കെടുക്കുന്നത്

റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ തിങ്കളാഴ്ചയാണ് കടപ്പത്ര ലേലം

ടാക്സി നിരക്ക് രണ്ടായിരം രൂപയായിരിക്കും ടാക്സി വാഹന ങ്ങൾക്ക് പാസ് ഏർപ്പെടുത്തും ഡ്യൂട്ടിക്ക് നിയോഗിച്ച ജീവനക്കാരെ കൊണ്ടു പോകുന്ന വകുപ്പുതല വാഹനങ്ങൾക്കും പ്രത്യേക പാസ് ആവശ്യമാണ്

മാറ്റത്തിൽ ജോണിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്

സി ടിവി ക്യാമറകൾ ഇല്ലാത്തതിനാൽ മോഷ്ടാക്കളെക്കുറിച്ചു സൂചന ലഭിച്ചിട്ടില്ല

മലയോര ട മേഖലയിൽ ശക്തമായ മഴയിലും വീശിയടിച്ച കാറ്റിലും കാർഷിക നാശമു ണ്ടായി മുഴപ്പിലങ്ങാട് കടവിന് സമീപം തെങ്ങ് കടപുഴകി വീണ് ഒരുവീട് തകർന്നു പത്തനംതിട്ട റാന്നിയിലും ഇന്നലെ വേനൽമഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി ഒരു വീട് പൂർണ്ണമായും ഇരുപ ത്തഞ്ചോളം വീടുകൾ ഭാഗികമായും തകർന്നു

വനപാലകരും വാച്ചർമാരും താൽക്കാലിക ജീവനക്കാരും ചേർന്ന് ഒരു മണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് തീയണച്ചത് രദ്ദേഷ്ടങ ദേശീയപാതയിൽ പുതുക്കാട് ജംഗ്ഷന് സമീപ്ം റോഡ് മുറിച്ചുകടക്കു കയായിരുന്ന ലോറി ഡ്രൈവറെ ഇടിച്ചശേഷം നിർത്താതെപോയ വാഹനം പൊലീസ് കസ്റ്റഡിയിലെടുത്തു കാറോട്ടിച്ചിരുന്ന പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ സംഗീത് ചെറിയാനെതിരെ കേസെ ടുത്തു